വ്യാപക നടപടികൾ

ഉയർന്നേക്കാമെന്ന് ആൾക്ക് സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉച്ചതിരിഞ്ഞ് ഉന്നതതല യോഗം വിളിച്ചു

ഉയർന്ന പിഴ ഇൌടാക്കും

പ്രതീകാത്മക സാമ്പിൾ വെടിക്കെട്ട് ഇന്ന്

മുംബൈയിലുമായി രണ്ട് മത്സരങ്ങൾ

രോഗവൃാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ അടച്ചുപൂട്ടലും വാരാന്ത്യ അടച്ചുപൂട്ടലും നടപ്പാക്കില്ല ഇന്നലെ ചീഫ് സ്രെകട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം മറ്റു സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാനും ധാരണയായി

ഈ പ്രദേശങ്ങളെ കണ്ടെയിൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചാണ് അടച്ചുപൂട്ടൽ ഏർപ്പെടുത്താൻ കളക്ടർ ഉത്തരവിട്ടത് ഇന്ന് വൈകിട്ട് ആറ് മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും കൂടുതൽ വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും ജോസഫ് മാർട്ടിൻ

ഓൺലൈൻ വഴി ചേരുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പൊലീസ് മേധാവിയും പങ്കെടുക്കും

സംസ്ഥാനത്തെ പ്രതിദിന കൊവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമെന്നാണ് ആശങ്ക

ഇന്നും നാളെയുമായി സംസ്ഥാനത്ത് വീണ്ടും കൂട്ടപ്പരിശോധന നടത്തുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം പേരിൽ പരിശോധന്യ നടത്താനാണ് തീരുമാനം

ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദ്ദിന് രോഗവ്യാപനമാണിത് എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

മലപ്പുറം നിരോധനാജ്ഞ കോവിഡ് വ്യാപനം രൂക്ഷമായ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ

ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും പരിശോധനാ സൌകര്യം ഉണ്ടാകും

തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കോവിഡ് പരിശോധന നടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കൂട്ട കോവിഡ് പരിശോധന ഇന്നും നാളെയും തുടരും

സർക്കാർ ആശുപത്രികളിൽ ഇന്ന് വാക്സിൻ കുത്തിവയ്പ്പില്ല പത്തനംതിട്ട പരിശ്ദ്ധ്ന പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി നേരിട്ട് പരിശോധന നടത്തി പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മിന്നൽ പരിശോധന നടത്തിയത്

മുടങ്ങിയ ടോക്കൺ വിതരണം പിന്നീട് പൊലീസെത്തി പുനഃരാരംഭിച്ചു കഴിഞ്ഞ മൂന്നു ദിവസമായി ഈ വാക്സിൻ ക്യാമ്പിൽ തിരക്ക് വളരെ കൂടുതലാണ്

മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തിര ശസ്ത്രക്രിയ ഒഴികെയുള്ളവ ഒഴിപ്പാക്കി

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വി

കുഴിമിന്നൽ പൊട്ടിക്കുന്നത് കാണാൻ ടൌണിലും പരിസരത്തും ആളുകൾ കൂട്ടം കൂടരുതെന്ന് പോലീസിന്റെ കർശന നിർദേശമുണ്ട്

പോലീസിന്റെ നേതൃത്വത്തിൽ ആ ർ ഡി ഒ യുടെയും ഫൊറൻസിക് വിദഗ്ധരുടെയും സാന്നിധൃത്തിലാണ് പരിശോധന രണ്ടുവർഷം മുമ്പ് കാണാതായ ഷാജിയെ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പൊലീസ് കണ്ടെത്തിയിരുന്നു